ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹിയറിങ് ഫോറത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇ

വിഭാഗത്തിന് അംഗത്വം ലഭിച്ചു വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സൌരോർജ്ജ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി എം

മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഏഴംഗ മന്ത്രിസഭ അധികാരമേറ്റു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് കുതിപ്പ് തുട ങ്ങി വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റിനെ തടഞ്ഞുവെച്ച അഭിഭാ ഷകർക്കെതിരേ ഹൈക്കോടതി സ്വമേധയാ കേസ്സെടുത്തു

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇ

വിഭാഗത്തിനാണ് അംഗത്വം ലഭിച്ചതെന്ന് അവർ തിരുവനന്തപുരത്ത് പറഞ്ഞു

എയിംസിനോട് കിട പിടിക്കുന്ന സൌകര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇ

വിഭാഗത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സൌരോർജ്ജ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി എം

പാരമ്പര്യേതര ഊർജ വൃവസായികളുടെയും സാങ്കേതിക വിദഗ്ധരു ടെയും ശിൽപ്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശിൽപ്പശാലയിൽ കേരള വാട്ടർ അതോറിറ്റി നാഷണൽ ഇൻസ്റ്റി റ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജി എന്നീ സ്ഥാപനങ്ങളുമായി അനർട്ട് ധാര ണാപത്രം ഒപ്പുവെച്ചു ഭൌതിക രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്തും വിദ്യാലയങ്ങളിൽ മാസ്റ്റർപ്പാൻ ഉണ്ടാവണമെന്ന് മന്ത്രി കട്ടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് കായണ്ണ ഗവൺമെന്റ് യു

സ്കൂളിൽ നിർമിച്ച കെട്ടിട സമ്മുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഈ മേഖലയിൽ സഹകരണ സ്ഥാപ നങ്ങളുടെ ഇടപെടലുണ്ടായാൽ മാത്രമേ കർഷകർക്ക് പ്രയോജനമുണ്ടാ കൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹരിതകേരളമിഷൻ തിരുവന ന്തപുരത്ത് സംഘടിപ്പിച്ച ശിൽപ്പശാലയിലെ കർമപരിപാടി ആസൂത്രണ സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മികച്ച രീതിയിൽ സംരംഭം തുടങ്ങാൻ അനുയോജ്യം സഹകരണമേഖലയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു യുവതലമുറയിൽ സംരംഭകത്വം ആസൂത്രണം ചെയ്യുവാനായി കോഴിക്കോട് യു എൽ സൈബർ പാർക്കിൽ നടത്തിയ ഗ്ലോബൽ കോഓപ്പറേറ്റീവ് എന്റർപ്രൈനേർസ് ട്രെയിനിംഗ് ഓഫ് അമ്പാസിഡർസ് പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാനം ചെയ്യുകയായിരുന്നു മന്ത്രി

പി കോൺഗ്രസ് സഖ്യ മന്ത്രിസഭ അധികാരമേറ്റു ശിവജി പാർക്കിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഭഗത്സിങ് കോശിയാരി ഉദ്ധവ് താക്കറെയ്ക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു വൻ ജനാവലി ചടങ്ങിന് സാക്ഷിയായി ശിവസേനയിലെ ഏകനാഥ് ഷിൻഡെ സുഭാഷ് ദേശായി എൻ

യിലെ ഛഗൻ ഭുജ്ബൽ ജയന്ത് പാട്ടീൽ കോൺഗ്രസിലെ ബാലാ സാഹബ് തൊറാട്ട് ഡോ നിതിൻ റൌത്ത് എന്നി വരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്

അധ്യക്ഷൻ ശരത്ത് പവാർ കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പ്രട്ടേൽ കമൽനാ ഥ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടു ത്തു

സംസ്ഥാനത്തിന്റെ ശോഭനമായ ഭാവിക്ക് ശിവസേനാ മേധാവി പ്രവർത്തി ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മോദി ട്വിറ്ററിൽ പറഞ്ഞു

യിൽനിന്ന് മുമ്പില്ലാത്തവിധം ഭീഷണി രാജ്യം നേരിടുന്ന അസാധാരണ സാഹച്ചര്യത്തിലാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻ

പിയും ശിവസേനയും ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ തീരു മാനിച്ചതെന്ന് ഉദ്ധവ് താക്കറെയ്ക്ക് അയച്ച അഭിനന്ദനകത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വിഷലിപ്തമായിട്ടുണ്ടെന്നും അവർ അറിയിച്ചു പാവങ്ങൾക്കുവേണ്ടി സ്ഥിരവും മതേതരവുമായ ഗവൺമെന്റ് പ്രദാനം ചെയ്യാൻ സഖ്യത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാഹുൽഗാന്ധി അയച്ച കത്തിൽ പറഞ്ഞു കാഞ്ഞങ്ങാട് നടക്കുന്ന അറുപതാമത് സംസ്ഥാന സ്കൂൾ കലോ ത്സവത്തിൽ ആദ്യദിനം സ്വർണക്കിരീടത്തിനായി കോഴിക്കോട് കുതിപ്പ് തുടങ്ങി

സ്കൂൾ വിഭാഗത്തിൽ പാലക്കാട് ആലത്തൂർ ബി

എസ്

ഇടുക്കി കുമരമംഗലം കെ

എം എച്ച്

പുലർച്ചെവരെ നീണ്ട മത്സരങ്ങൾ കാണാൻ കലോത്സവ വേദികളിലേക്ക് അണമുറി യാതെ ആസ്വാദക പ്രവാഹമായിരുന്നു

വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റിനെ തടഞ്ഞുവെച്ച അഭിഭാഷ കർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസ്സെടുത്തു ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പരാതിപ്രകാരമാണ് ഹൈക്കോടതി നടപടി കേസ് ഇന്ന് കോടതി പരിഗണിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ

ജയചന്ദ്രൻ ഉൾപ്പെടെ പത്ത് അഭിഭാഷകർക്കെതിരേ പോലീസും കേസ്സെടുത്തിട്ടുണ്ട്

ഇന്ത്യൻ സൂപ്പർലീഗ് ഫൂട്ബോളിൽ ചെന്നൈയിൻ എഫ്

ഒഡീഷ എഫ്

ഇരുടീമുകളും രണ്ടുഗോളു കൾവീതം നേടി പോയിന്റ് പട്ടികയിൽ ഒഡീഷ ആറാം സ്ഥാനത്തും ചെന്നൈയിൻ എട്ടാംസ്ഥാനത്തുമാണ് ഇന്ന് ഹൈദരാബാദ് ബെംഗളുരു എഫ് സിയെ നേരിടും ഹൈദരാബാദ് ജി

മച്ചിലിപട്ടണത്ത് നടക്കുന്ന സൌത്ത് സോൺ ചാംപ്യൻഷിപ്പിൽ കാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഭാരതീയാർ സർവകാലശാലയെ ഏകപക്ഷീയ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് യോഗ്യത ഉറപ്പാക്കിയത്

സംസ്ഥാന ഗെയിംസിന് മുന്നോടിയായ ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ നാല് മുതൽ ഏഴ് വരെ കോഴിക്കോട് ബീച്ചിലും പുതിയാപ്പയിലും നടക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു

അടുത്തമാസം എട്ടിന് സമാപിക്കും പറമ്പിക്കുളം ആളിയാർ ജലപദ്ധതിയിൽ നിന്ന്റകേരളത്തിന് അർഹമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ

പാലക്കാട് കുന്നങ്കാട്ടു പതിയിലെ സമഗ്ര കുടിവെള്ള പദ്ധതി ജലശുദ്ധീകരണ ശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനം പശ്ചാത്തല സൌകരൃവികസനമാണെന്ന് സ്പീക്കർ പി

ഫീൽഡ് ഔട്റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖൃത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് ബോധവ ത്കരണ പരിപാടി സംഘടിപ്പിക്കും പുതിയ ആധാർകാർഡ് രജിസ്റ്റർ ചെയ്യുവാനും നിലവിലെ ആധാറിൽ തിരുത്തലുകൾ വരുത്തുവാനും പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൌണ്ട് തുടങ്ങുന്നതിനും തപാൽ വകുപ്പ് പ്രത്യേക കൌണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമായി കേര ളത്തെ മാറ്റുകയാണ് പോലീസിന്റെ ലക്ഷ്യമെന്ന് ഡി

വിജയ് സാക്കറേ ഉദ്ഘാടനം ചെയ്തു

ഇടുക്കി ജില്ലയിലെ അങ്കണവാടികളുടെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷയും സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാകലക്ടർ എച്ച് ദിനേശൻ വനിതാ ശിശുക്ഷേമ ജില്ലാ ഓഫീസറോട് ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഇടുക്കി ജില്ലയിലെ വിനോദ സഞ്ചാരകേന്ദ്രങ്ങളിലെ അനധികൃത ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി അമിതവേഗത്തിലും സാഹസികമായ രീതിയിലും ജീപ്പ് സഫാരി നടത്തുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനമെ ടുത്തത് കാറികളുടെയും പാറമടകളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന നിയമസഭാസമിതി എറണാകുളം ജില്ലയിലെ പാറമടകൾ സന്ദർശിച്ചു പാറമടകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രളയത്തിനുശേഷം ജനങ്ങളിൽ ആശങ്കവർധിച്ചിരിക്കയാണെന്ന് സമിതി ചെയർമാൻ മുല്ല ക്കര രത്നാകരൻ പറഞ്ഞു

അന്നദാന ക്യാമ്പിലെത്തിയ മുത്തവല്ലി ഉൾപ്പെടെ ഭാരവാഹികളെ അയ്യപ്പസേവാസംഘം ഭാരവാഹി കൾ സ്വീകരിച്ചു ശബരിമല തീർത്ഥാടകരുടെ സൌകരൃം കണക്കിലെടുത്ത് എരുമേലിയിൽ വെർച്വൽ ക്യൂ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി

പ്രളയത്തിൽ കിടപ്പാടം നഷ്ടമായ മലപ്പുറം നിലമ്പൂർ മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ജില്ലാ ഭരണകൂടം താൽക്കാലിക ഷെൽട്ട റുകൾ നിർമിച്ചുനൽകും ഇതിനായി പോത്തുകല്ല് പഞ്ചായത്തിൽ ഒരേ ക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്